അയോധ്യ ഭൂമിതർക്ക കേസിൽ മധ്യസ്ഥ ചർച്ചകൾ പരാജയപ്പെട്ടെന്ന് സുപ്രീം കോടതി ചൊവ്വാഴ്ച മുതൽ തുടരെ വാദം കേൾക്കും

തീർത്ഥാടകർ കാശ്മ്പീർ താഴ്വര വിട്ടുപോകണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശും

മാത്രമെന്ന് അമേരിക്കയോട് ഇന്ത്യ

ഇന്ത്യയുടെ സാതിക് സായ്രാജ് രങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം പുരുഷന്മാരുടെ ഡബിൾസ്് സെമിയിൽ കടന്നു

വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ മധ്യസ്ഥ സമിതിയ്ക്ക് ആയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗൊയ് പറഞ്ഞു

അമർനാഥ് യാത്രയെ ലക്ഷൃം വച്ച് ഭീകരാക്രമണം ഉണ്ടാകാൻ ഇടയുണ്ടെന്ന രഹസ്യാമ്പേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നിർദ്ദേശം അമർനാഥ് യാത്രയെ തകർക്കാൻ പാക് സൈനൃത്തിന്റെ പിന്തുണയോടെ ഭീകരർ പദ്ധതിയിട്ടിരുന്നതായി അധികൃതർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി അമർനാഥ് യാത്രാവഴിയിൽ സി ആർ പി എഫ് സേന പോലീസ് എന്നിവർ സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ വൻ ആയുധ ശേഖരം പിടിച്ചെടുത്തതായും അധികൃതർ അറിയിച്ചു

നിയന്ത്രണ രേഖയ്ക്കടുത്ത് പാകിസ്ഥാൻ സേനയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും എന്നാൽ ഇത്തരം ശ്രമങ്ങളെ സുരക്ഷാ സേന ഫലപ്രദമായി പ്രതിരോധിക്കുന്നുണ്ടെന്നും ആകാൾവാണി ശ്രീനഗർ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

കേന്ദ്ര വിദേശകാരൃമന്ത്രി എസ് ജയ്ശങ്കർ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോയെ അറിയിച്ചതാണ് ഇക്കാര്യം തായ്ലന്റിൽ നടക്കുന്ന ഒൻപതാമത് കിഴക്കനേഷ്യൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കവെയാണ് ശ്രീ ജയശങ്കർ പോംപിയോയുമായി കൂടിക്കാഴ്ച നടത്തിയത് കാശ്മീർ വിഷയത്തിൽ ഇടപെടാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്

ഭീകരവാദത്തിനെതിരെ പോരാടാൻ ശ്രീലങ്കയ്ക്ക് ഇന്ത്യയൂട്ടെ പൂർണ്ണ പിന്തുണ അദ്ദേഹം ഉറപ്പുനൽകി

കേസ് ഡൽഹിയിലേയ്ക്ക് മാറ്റരുതെന്ന് സിബിഐ സുപ്രീം കോടതിയെ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി കവിത സൂനു

ബി

ഇതേ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് ദീപക് ഗുപ്ത എന്നിവരടങ്ങിയ ബഞ്ച് മുൻ തീരുമാനത്തിൽ മാറ്റം വരുത്തിയത് നേരത്തെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നും കേസ് ഡൽഹിയിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സക്കായി ന്യൂഡൽഹി എയിംസിലേയ്ക്ക് മാറ്റുന്നതിൽ ഇരുയുടെ കുടുംബത്തിന് തീരുമാനമെടുക്കാമെന്നും പരമോന്നത്രിക്കോടതി ചൂണ്ടിക്കാട്ടി

ഞായറാഴ്ച നടന്ന അപകടത്തിൽ പെൺകുട്ടി സഞ്ചരിച്ച കാർ ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ പെൺകുട്ടിക്കും അഭിഭാഷകനും ഗുരുതരമായി പരിക്കേൽക്കുകയും പെൺകുട്ടിയുടെ രണ്ട് അമ്മായിമാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു

അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വി

ഐ

ഹെലികോപ്റ്റർ ഇടപാട് തട്ടിപ്പ് കേസിലാണ് ശ്രീ

ചൊവ്വാഴ്ച വരെ പുരിക്ക് അറസ്റ്റിൽ നിന്നും ഇടക്കാല സംരക്ഷണം നൽകാനും പ്രത്യേക ജഡ്ജി അരവിന്ദ് കുമാർ ഉത്തരവിട്ടു

അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശാനുസരണം പ്രതികാര നടപടിയുടെയോ ഭയപ്പെടുത്തലിന്റെയോ അന്തരീക്ഷം സന്ദർശന വേളകളിൽ ഉണ്ടാകരുതെന്നും ഇസ്ലാമാബാദിനോട് ആവശ്യപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ ഇതിൽ പാകിസ്ഥാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല

കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

എ

ഭീകരവാദത്തിനെതിരെ ഒരേ സ്വരത്തിൽ പോരാടേണ്ടതുണ്ടെന്നും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എൻ ഡി എ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ബില്ലിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയവേ ആഭ്യന്തരമന്ത്രി അമിത് ഷാ വൃക്തമാക്കി വൃക്തികളെ ഭീകരവാദികളെന്ന് വിശേഷിപ്പിക്കുന്നുവെന്ന അംഗങ്ങളുടെ പരാതിയ്ക്ക് മറുപടിയായി അമേരിക്ക പാക്കിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളും ഇത്തരം കീഴ്വഴക്കം പിന്തുടരുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി ഭീകരർ ഒരു മത്തിലും പെട്ടവരല്ലെന്നും കാലോചിതമായ ഭേദഗതികൾ നിലവിലെ നിയമത്തിൽ ഉണ്ടാകണമെന്നും ശ്രീ

ബിൽ സെലക്ട് കമ്മറ്റിയ്ക്ക് വിടണമെന്ന ഡി എം കെയുടെയും സി

പുതിയ ഭേദഗതിയിലെ ചില ഭാഗങ്ങൾ ഭരണഘടനാ വിരുദ്ധവും വ്യക്തി സ്വാതന്ത്ര്യത്തിന് എതിരുമാണെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടെ കോൺഗ്രസ് ആരോപിച്ചു ആരെയും ഭീകരവാദിയെന്ന് മുദ്രകുത്താൻ ബിൽ ഗവൺമെന്റിന് അധികാരം നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് പി

പുതിയ നിയമം കോടതി റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഏത് സംസ്ഥാനത്തും പോയി അന്വേഷണം നടത്താൻ ദേശീയ അന്വേഷണ ഏജൻസിയ്ക്ക് പുതിയ ഭേദഗതി അധികാരം നൽകുന്നുണ്ടെന്ന് സി

ന്റെ എളമരം കരീഠ കുറ്റപ്പെടുത്തി

എ നിയമത്തെയാണ് പുതിയ ബിൽ ഭേദഗതി ചെയ്യുന്നത്

കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി ശമ്പളം മറ്റ് ആനുകൂലൃങ്ങൾ എന്നിവ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്ന വ്യവസ്ഥകളാണ് ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്

ഐ

ഇന്ത്യക്കാർക്കും ഇന്ത്യൻ സ്വത്ത് വകകൾക്കുമെതിരെ വിദേശത്ത് നടക്കുന്ന കുറ്റകൃതൃങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരം ഏജൻസിക്കു നൽകാനും നിയമം ലക്ഷ്യമിടുന്നു

കൊറിയൻ സഖ്യത്തെയാണ് കാർട്ടറിൽ ഇവർ പരാജയപ്പെടുത്തിയത് പുരുഷന്മാരുടെ സിഗിംൾസ് കാർട്ടറിൽ ബി

ഇതോടെ പുരുഷന്മാരുടെ സിഗിംൾസിൽ ഇന്ത്യൻ പ്രതീക്ഷകൾ അവസാനിച്ചു